ജമ്മുകശ്മീരിൽ സുരുക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ലഷ്ക്ക്ർ ഇ തൊയ്ബ കമാന്റർ ഉൾപ്പെടെ ആറ് തീപ്പ്രവാദികൾ കൊല്ലപ്പെട്ടു

രാജ്യത്ത് ആഭ്യന്തര ഗോൾഡ് കൌൺസിൽ ന് രൂപീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ്പ്രഭു

ശബരിമല എത്രയും വേഗം സാധാരണ നിലയിലേക്ക് എത്തിക്കാൻ ഗവണ്മെന്റ് നടപടി സ്വീകരിക്കണമെന്നും ഇതിനായി എല്ലാവരും സഹകരിക്കണമെന്നും ഹൈക്കോടതി

ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥർക്കു പ്രവശേനം നിഷേധിച്ച രീതിയിലും ഇന്ത്യ പ്പിതിഷേധമറിയിച്ചു

എന്നാലിത് തുടർച്ചയായ മുന്നാം തവണയാണ് ഉദ്യോഗസ്ഥർക്ക് അനുവാദം നിഷേധിക്കുന്നതെന്നും കേന്ദ്രം കുറ്റപ്പെടുത്തി

ഗുരുനാനാക്ക് ജയന്തി അഥവാ ഗുർപൂരാർബിനോട് അനുബന്ധിച്ച് സിഖ് സമൂഹത്തിന് രാഷ്ട്രപതിയും പ്രിക്ടാനമന്ത്രിയും ആശംസകൾ നേർന്നു

നരേന്ദ്രമോദിയും ബിജെപി പ്രധാനമന്ത്രി അദ്ധ്യക്ഷൻ അമിത്ഷായും കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധിയും വിവിധ തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുത്തത് അണികൾക്ക് ആവേശം പകർന്നു കൂടുതൽ വിവരങ്ങളുമായി വീണാമുകുന്ദൻ

ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന നയമാണ് കോൺഗ്രസ് പിന്തുർന്നതെന്നും അഴിമതിയിൽ മുങ്ങിയ ഭരണമാണ് അവർ നടത്തിയതെന്നും ശ്രീ

മുഖ്യതെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഒ

ബിജെപി പ്രസിഡന്റ് അമിത്ഷായും കോൺഗ്രസ് അദ്ധ്യക്ഷൻ രാഹുൽഗാന്ധിയും സംസ്ഥാനത്ത് സജീവമായ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലുണ്ട് ന്യൂസ് ഡസ്ക് ആകാശവാണി

കൊല്ലപ്പെട്ടവരിൽ ഒരാൾ ലഷ്കർ ഇ തൊയ്ബയുടെ മുതിർന്ന കമാന്ററാണ്ട് മാധ്യമപ്രവർത്തകൻ ഷുജാദ് ബുഖാരിയുടെ കേസിൽ സംശയിക്കുന്നയാളാണ് ആസാദ്ദ് മാലിക് എന്ന ലഷ്കർ കമാന്റർ അനന്ത്നാഗ് ജില്ലയിലെ ബ്രിജ്ബഹാര പട്ടണത്തിൽ ഇന്ന് രാവിലെയായിരുന്നു സംഭവം

ഇന്തൃയും ആസ്ട്രേലിയയും തമ്മിൽ വിവിധ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ അനന്തസാധ്യതകളുണ്ടെന്ന് രാഷ്ട്രപതി പറഞ്ഞു ഇരുരാജ്യത്തെയും വിദ്യാർത്ഥികൾ വിവിധ മേഖലകളിൽ ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്തണമെന്നും രാഷ്ട്രപതി പറഞ്ഞു

ബംഗലൂരുവിൽ ലോക യുവജന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിജ്ഞാനം ക്രിയാത്മത നൈപുണ്യശേഷി അത്മവിശ്വാസം തുടങ്ങിയ മൂല്യങ്ങളിലൂന്നി ഇന്ത്യയുടെ വളർച്ചാഗതി മെച്ചപ്പെടുത്താൻ ഉപരാഷ്ട്രപതി യുവാക്കളോട് ആഹ്വാനം ചെയ്തു

പ്രതിരോധം കൃഷി വാണിജൃ നിക്ഷേപങ്ങൾ ശാസ്ത്രം വിവരസാങ്കേതിക വിദൃ തുടങ്ങിയ വിഷയങ്ങളിൽ ഖനനം ഊർജ്ജം ഇരുരാജൃങ്ങൾക്കുമിടയിൽ നിലവിലുള്ള ഉഭയകക്ഷി സഹകരണം യോഗം വിലയിരുത്തി

ന്യൂഡൽഹിയിൽ സ്വർണ്ണാഭരണ ഉച്ചകോടിയുടെ രണ്ടാം പതിപ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

ആരും നിയമം കൈയ്യിലെടുക്കരുതെന്ന് നിർദ്ദേശിച്ച കോടതി ഇക്കാര്യത്തിൽ എല്ലാപേർക്കും ഉത്തരവാദിത്തം ഉണ്ടെന്നും പറഞ്ഞു

ദർശനത്തിന് പൊലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുള്ള നാലു യുവതികളുടെ പൊതുതാൽപര്യ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു ഗവൺമെന്റ് നിലപാട് അറിയിച്ചത്

കൃഷ്ണൻ കുട്ടിയെ ഇടതുമുന്നണി എം

എ മന്ത്രിസഭയിൽ ജെഡിഎസ് പ്രി്തിനീധിയായി നിയോഗിക്കുമെന്ന് പാർട്ടി ദേശീയ ജനറൽ സ്ക്രിക്ടറി ഡാനിഷ് അലി ബംഗളൂരുവിൽ അറിയിച്ചു

രണ്ടര വർഷത്തിന് ശേഷം മന്ത്രിസ്ഥാനം വച്ചുമാറാമെന്ന ധാരണയുടെ അടിസ്ഥാനത്തിലാണ് സ്ഥാനമാറ്റം

പരമ്പരയിലെ മൂന്നാമത്തേതിട്ട അവസാനത്തേതുമായ മത്സരം മറ്റുന്നാൾ സിഡ്നിയിൽ നടക്കു്

സി

നാളെ നടക്കുന്ന മത്സരത്തിൽ ഉക്രയ്ൻ താരമായ ഹന്ന ഒഖോട്ടയെയാണ് മേരി കോം നേരിടുന്നത്